സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളുടെ കൈമാറ്റം അടക്കമുള്ള കരാറുകളിൽ ഒപ്പുവെച്ചു

ഒരു രാഷ്ട്രം ഒരു കാർഡ് പദ്ധതിക്ക് ഉടൻതന്നെ തുടക്കം കുറിക്കുമെന്ന് നിതി ആയോഗ്

ഡിജിറ്റൽ വിവരശേഖരണത്തിന് സംവിധാനമായി

ഇതുവഴി ഇന്ത്യയിലും സൈപ്രസിലും കൂടുതൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ

ഇരുരാജ്യങ്ങൾക്കും പ്രധാന്റുപ്പട്ട വിവിധ വിഷയങ്ങളിൽ ര നേതാക്കളും ചർച്ച നടത്തി

സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവ്രങ്ങൾ കൈമാറുക പാരിസ്ഥിതിക വിഷയങ്ങളിലെ സഹകരണം എന്നീ മേഖലകളിലെ കരാറുകളിലാണ് ഒപ്പുവെച്ചത് വിവരസാ്ങ്കേതികത വിനോദ സഞ്ചാരം ഷിപ്പിംഗ് പുനരുപയോഗ സാധ്യമായ ഊർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും സൈപ്രസും തീരുമാനിച്ചിട്ടു ്

നേരത്തെ സൈപ്രസ് ജനപ്രതിനിധി സഭയെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പാക്കിയത് വ്യാപാര മേഖലയിൽ അച്ചടക്കം കൊ ുവരാൻ സഹായിച്ചതായി പറഞ്ഞു രാജ്യാന്തര സൌരസഖ്യത്തിൽ അംഗമാകാനും അദ്ദേഹം സൈപ്രസിനെ ക്ഷണിച്ചു പാർലമെന്റ് വളപ്പിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ രാഷ്ട്രപതി പൂഷ്പചക്രം ് സമർപ്പിക്കുകയും ഉ ായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് സൈപ്രസ് പിന്തുണ നൽകുന്നതിൽ രാഷ്ട്രപതി നന്ദി പ്രകടിപ്പിച്ചു ആണവ വിതരണ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യ അംഗമാകുന്നതിനെയും സൈപ്രസ് പിന്തുണയ്ക്കുന്നു ന്ന് അദ്ദേഹം പറഞ്ഞു

രാഷ്ട്രപതി സൈപ്രസ് സ്ഥാപകൻ ആർച്ച് ബിഷപ്പ് മൂന്നാമന്റെ പ്രതിമയിൽ പുഷ്പചക്രവും സമർപ്പിച്ചു

ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തൽ സൌജന്യമായി മരുന്നുകൾ ലഭ്യമാക്കൽ രോഗങ്ങൾ ക ത്താനുള്ള പരിശോധന എന്നിവ വഴി രോഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമിട്ടീരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആരോഗൃ മേഖലയിൽ അധിക്ക് പണം ചെലവഴിക്കുന്നത് കുറയ്ക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു

എല്ലാവർക്കും ഉന്നതനിലവാരത്തിലുള്ള ആർോഗ്യ ് പരിരക്ഷ കുറഞ്ഞ ് ചിലവിൽ ഉറപ്പുവരുത്തുകയാണ് കേന്ദ്ഗ്പ്പൺമെന്റ ഉദ്ദേശിക്കുന്നത്

അതിനിടെ തുംകുരു ജില്ലയിൽ വിജയാഹ്ലാദപ്രകടനത്തിന് നേർക്ക് ആസിഡ് കലർന്ന വെള്ളം ചീറ്റിച്ചതിനെ തുടർന്ന് പത്ത് പേർക്ക് പൊള്ളലേറ്റു കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്താദപ്രകടനത്തിന് നേർക്കാണ് ആസിഡാക്രമണമു ായത്

ജമ്മുകാശ്മീർ പോലീസിന്റെ ഫ്രത്യേക ്വിഭാഗം കരസേന ഭടന്മാർ സി ആർ പി എഫ് എന്നിവരാണ് സംയുക്തമായി തെരച്ചിൽ നടത്തുന്നത് ഭീകര സാന്നിധ്യമുടെ ന്നു പിവ്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീടുവീടാന്തരം കയറിയുള്ള് പരിശോധന നടക്കുന്നത് ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും അടച്ചുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്

ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ വലിയ തിരക്കാണനുഭവപ്പെടുന്നത് ശ്രീകൃഷ്ണ ജന്മസ്ഥലമായ ഉത്തർപ്രദേശിലെ മധുരയിലാണ് പ്രധാന ആഘോഷങ്ങൾ ജന്മാഷ്ടമി പ്രമാണിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസ നേർന്നു

ടി വകുപ്പിന്റെ ആഭിമു ഖ്യത്തിൽ മൊബൈൽ പ്ലാറ്റ്ഫോം നിലവിൽ വന്നു വീടുകൾ നഷ്ടപ്പെട്ടവർക്കും ഭാഗികമായി തകർന്നവർക്കും പ്രയോ ജനപ്പെടുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

ശക്തമായ ഗതാഗത സംവിധാനമാണ് ഒരു സമ്പദ്വൃവസ്ഥയുടെ നട്ടെല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജൈവ ഇന്ധനങ്ങളെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതെങ്കിലും റോഡ് ഗതാഗതം മേഖല മാത്രമായി രാജ്യത്തിന്റെ ആഭ്യന്തരമൊത്ത ഉല്പാദനത്തിന്റെ നാല് ശതമാനം സംഭാവന ചെയ്യുന്നു ് സൂസ്ഥിരമായ പൊതുഗതാഗത സംവിധാനം ഗതാഗതത്തിൽ അധിഷ്ഠിതമായ ആസുത്രണം ഡിജിറ്റലൈസേഷൻ എന്നിവയ്ക്ക് പ്രാമുഖ്യം നല്കുന്നതായും അദ്ദേഹം അറിയിച്ചു

നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് കണക്കുകൾ പുറത്തു വിട്ടത്

തെരായ് സംസ്ഥാനത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങൾ ഇപ്പോൾ തന്നെ വെള്ളത്തിലാണ് കനത്ത മഴയെ തുടർന്ന് ബുന്ദേൽഖണ്ഡ് മേഖലയിലെ എല്ലാ നദികളും കരകവിയുകയും അണക്കെട്ടുകൾ തുറന്നു വിടുകയും ചെയ്തു

നാളെവരെ മഴ ഉ ാകുമെന്ന് സംസ്ഥാന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

കുടിവെള്ളം ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട് ആഗോളമായി കൈവരിക്കുന്ന പുരോഗതി വിലയിരുത്തിയാണ് റിപ്പോർട്ട്